വികസന പദ്ധതികൾക്ക് അല്പ്പുസമയത്തിനകം തുടക്കമിടും

ബ്രിട്ടണിൽ നിന്നും മടങ്ങിയെത്തിയ എട്ടിലേറെ പേരെ ബാധിച്ചു കോവിഡ് വൈറസ് ജനിതകമാറ്റം സംഭവിച്ചു താണോ എന്നറിയാൻ കൂടുതൽ പരിശോധനയ്ക്ക് അയച്ചതായി ആരോഗ്യമന്ത്രി കെ

കേന്ദ്ര ആഭൃന്തര മന്ത്രി അമിത് ഷാ ജമ്മു കശ്മീർ ലെഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു സാർവത്രികമായ ആരോഗ്യ പരിരക്ഷയും ചെലവുകുറ ഞ്ഞതും ഗുണനിലവാരമുള്ളതുമായ ചികിത്സാ സംവിധാനങ്ങളും എല്ലാ ജമ്മുകൾമീർ നിവാസികൾക്കും ഉറപ്പുവരൂത്യു്ന്ന തിനു വേിയുള്ളതാണ് പദ്ധതി

രാജ്യത്തെവിടെയും ഈ പ്പ്യൂർതിയുടെ ആനുകൂല്യങ്ങൾ പ്രയോജന പ്പെടുത്താവുന്നതാണ് ആയുഷ്മാൻ ഭാരത് പദ്ധതിയുടെ ഭാഗമായി നടപ്പാക്കിയ പ്രധാനമന്ത്രി ്ളജൻ ആരോഗൃയോജനയുമായി സംയോജി പ്പിച്ചാണ് പിഎം സെഹത് പദ്ധതി നടപ്പാക്കുന്നത് പ്രധാനമന്ത്രി ജൻ ആരോഗൃയോജനയുടെ ഭാഗമായി ഇൻഷുറൻസ് കവറേജ് ലഭിക്കുന്ന എല്ലാ ആശുപത്രികളിലും പിഎം ജയ് സെഹത് പദ്ധതിയിലൂടെയുള്ള സേവനങ്ങളും ലഭ്യമാകും

ഗുവാഹത്തി യിൽ രാമത്തെ മെഡിക്കൽ കോളേജ് സ്ഥാപിക്കുന്നതിന് തുടക്കം കുറിക്കുന്ന ചടങ്ങിലും അദ്ദേഹം മുഖ്യ അതിഥിയാകും

അസം ദർശൻ പരിപാടിയുടെ ഭാഗമായുള്ള ധനസഹായവും അദ്ദേഹം ഇന്ന് കൈമാറും അസമിലെ ബിജെപി നേതൃത്വവുമായും ആഭ്യന്തരമന്ത്രി കൂടിക്കാഴ്ച നടത്തും

വിശദാംശങ്ങളിലേക്ക്

കൃഷ്ടിവിധ സംസ്ഥാനങ്ങളിൽ വാക്സിനേഷൻ ട്രെയിനർമാർക്കുള്ളൂ പ്രപ്ത്യേക പരിശീലന പരിപാടി കൾ നടന്നു

വൈറസിന് ജനിതക മാറ്റം വരുന്നതായി കണ്ടെത്തിയ സാഹചര്യത്തിൽ വിമാനത്താവളങ്ങളിൽ ശ്രദ്ധ വർധിപ്പിച്ചിട്ടുണ്ട് ബ്രിട്ടനിൽ നിന്ന് വന്ന എട്ടിലധികം പേർക്ക് ബാധിച്ച വൈറസ് ജനിതക മാറ്റം സംഭവിച്ചതാണോ എന്ന് പരിശോധിക്കാൻ പൂനെയിലേക്ക് അയച്ചിട്ടുണ്ടെന്നും ആരോഗ്യ മന്ത്രി പറഞ്ഞു ജനിതക മാറ്റം സംഭവിച്ച വൈറസിനും നിലവിലെ വാക്സിൻ ഫലപ്രദമാണെന്നാണ് വിദഗ്ധരുടെ നിലപാട് കേരളത്തിൽ കോവിഡ് മരണ നിരക്ക് കൂടിയിട്ടില്ല എന്നും ശ്രീമതി കെ

ശൈലജ കണ്ണൂരിൽ മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞു

ഒരു ലക്ഷം കോടിയിലേറെ രൂപ പദ്ധതിയിലൂടെ ഇതിനകം കർഷകർക്ക് കൈമാറിയ തായി പ്രധാനമന്ത്രി പറ്ഞ്ഞു രാജ്യത്തെ കർഷകരുടെ കൃഷിക്കാ യുള്ള മുതൽ മുടക്ക് കുറയ്ക്കുന്നതിന് വേ കേന്ദ്ര സർക്കാർ നിരവധി പ്രവർത്തനങ്ങൾ നടത്തിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചടങ്ങിൽ പറഞ്ഞു കാർഷിക നിയമങ്ങൾക്കെതിരെ പ്രതിപക്ഷ കക്ഷികൾ തെറ്റായ കാര്യങ്ങൾ പ്രചരിപ്പിച്ച് രാഷ്ട്രീയ ലാഭത്തിനായി ഉപയോഗിക്കു ന്നതായും അദ്ദേഹം വിമർശിച്ചു ആറ് സംസ്ഥാനങ്ങളിലെ കർഷകരു മായും പ്രധാനമന്ത്രി ഇന്നലെ ആശയവിനിമയം നടത്തി

ഗീതയിലെ ആശയങ്ങൾ പൂർണതയുള്ള ജീവിതത്തിന് ജനങ്ങളെ പ്രചോദിപ്പിക്കും എന്നും പ്രധാന മന്ത്രി ട്വിറ്ററിൽ കുറിച്ചു

തുടർന്ന് മലയാളത്തിലുള്ള പരിഭാഷയും കേൾക്കാം

ഇന്ത്യയെ ലോകത്തെ ഏറ്റവും മികച്ച ആഗോള സമ്പദ്ഘടനയാക്കി മാറ്റി പ്രധാനമന്ത്രിയുടെ ആത്മനിർഭർ ഭാരത് എന്ന സ്വപ്നം സാക്ഷാൽക്കരിക്കുന്നതിനെക്കുറിച്ചും കേന്ദ്രമന്ത്രി ആകാശ വാണി വാർത്തകൾക്കു നൽകിയ പ്രത്യേക അഭിമുഖത്തിൽ പറഞ്ഞു നിരവധി സൂക്ഷ്മചെറുകിട ഇടത്തരം സംരംഭങ്ങൾ പുനഃസംഘടി പ്പിക്കുമെന്നും അദ്ദേഹം വൃക്തമാക്കി

പാർട്ടി പ്രസിഡന്റും ബീഹാർ മുഖ്യമന്ത്രിയുമായ നിതീഷ് കുമാറിന്റെ അധ്യക്ഷതയിൽ നടക്കുന്ന യോഗത്തിൽ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുക്കുന്നുണ്ട് ബീഹാർ തെരഞ്ഞെടുപ്പിലെ പാർട്ടിയുടെ പ്രകടനം സംബന്ധിച്ച വിശകലനം യോഗത്തിൽ നടക്കും

പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഓസ്ട്രേലിയ വിജ്യിച്ചിരുന്നു

ഫുട്ബോളിൽ ഇന്ന് ചെന്നൈയിൻ എഫ്

അതേസമയം ആറ് മത്സരങ്ങളിൽ ഒരെണ്ണത്തിൽ പോലും ജയിച്ചിട്ടില്ലാത്ത ഈസ്റ്റ് ബംഗാൾ പോയിന്റ് പട്ടികയിൽ അവസാനമാണുള്ളത്

അതിനു ശേഷം എട്ട് ഒളിംപിക്സിൽ പങ്കെടുത്തെങ്കിലും ഒരിക്കൽ പോലും പുരുഷ ടീമിന് മെഡൽ നേടാൻ കഴിഞ്ഞില്ല കോവിഡ് വ്യാപനത്തെ തുടർന്ന് ഈ വർഷം നടക്കേിയിരുന്ന ഒളിംപിക് മത്സരങ്ങൾ അടുത്ത വർഷത്തേക്ക് മാറ്റിയിട്ടുണ്ട്

ബ്രിട്ടനിൽ തിരിച്ചറിഞ്ഞ കോവിഡ് വകഭേദത്തേക്കാൾ ഇതിന് രോഗ സാധ്യത കൂടുതലാണ് എന്നതിന് തെളിവുകളൊന്നും ലഭിച്ചിട്ടില്ലെന്ന് ബ്രിട്ടീഷ് ആരോഗ്യമന്ത്രി സെലിനി ഖൈസ് പറഞ്ഞു